എം മണി ഡോ

ടി ജലീൽ എന്നിവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

ഉത്സവങ്ങളും ശൈത്യവും അതുപോലെ സമ്പദ് വ്യവസ്ഥ തുറക്കുന്നതും കണക്കിലെടുത്താണ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക കൈകൾ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് വൃത്തിയായി സൂക്ഷിക്കുക എന്നീ സന്ദേശങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്

ബാനറുകളും പോസ്റ്ററുകളും ചുമർ ചിത്രങ്ങളും ഉൾപ്പെടെ ഇതിനായി ഉപയോഗിക്കും രുര രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതും രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതും കോവിഡിനെതിരെ കേന്ദ്രം കൈക്കൊണ്ട നടപടികളുടെ വിജയമാണെന്ന് കേന്ദ്രആരോഗ്യ മന്ത്രി ഡോ

കോവിഡ് പരിശോധനയിലും വർദ്ധനയുണ്ടായെന്ന് മധ്യപ്രദേശിലെ ഒരു ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യവെ കേന്ദ്രമന്ത്രി പറഞ്ഞു

രും സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ആദ്യമായി പതിനായിരം കടന്നു

കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി

ആദ്യമായാണ് ഇത്രയധികം പേർക്ക് ഒരു ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി രുര മന്ത്രിമാരായ എം എം മണി ഡോ

തോമസ് ഐസക് ഇ പി ജയരാജൻ വി എസ് സുനിൽകുമാർ എന്നിവർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു രും കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങൾ കർശന നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് മന്ത്രി എ

ആരോഗ്യ പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് പോലും വലിയ തോതിൽ കോവിഡ് ബാധയേൽക്കുന്ന സാഹചര്യമാണിപ്പോഴെന്നും നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടിവരുമെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു

രോഗ വ്യാപനം തടയാൻ സ്വീകരിക്കുന്ന ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാൻ ജനപിന്തുണ അനിവാര്യമാണെന്നും ആരോഗ്യ ജാഗ്രതാ നിർദേശങ്ങൾ പാലിക്കുന്നതിൽ ഒരു തരത്തിലും വീഴ്ച പാടില്ലെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു രുര കോവിഡ് നിയന്ത്രണ ബോധവത്കരണത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ ശാസ്താംകോട്ട ഭരണിക്കാവ് എന്നിവിടങ്ങളിലെ വ്യാപാരസ്ഥാപനങ്ങളിലും ബാങ്കുകളിലും മിന്നൽ പരിശോധന നടത്തി മാസ്ക് ഇടാത്ത ആറുപേർക്കും സന്ദർശക രജിസ്റ്റർ സൂക്ഷിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കും പിഴചുമത്തി ഉറവിടമറിയാത്ത കോവിഡ് കേസുകൾ കൂടുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കലക്ടർ പറഞ്ഞു

ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒമ്പത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്

എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി

ഇന്ന് ദുബായിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും ദേഴ ഇന്ന് ലോക കാഴ്ച ദിനം അന്ധത കാഴ്ച വൈകല്യങ്ങൾ എന്നിവയിൽ ആഗോള ശ്രദ്ധ പതിപ്പിക്കുന്നതിനാണ് ഒക്ടോബറിലെ രണ്ടാം വ്യാഴാഴ്ച ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നത്

രാജ്യത്ത് ആയിരം കുട്ടികളിൽ ദശാംശം എട്ട് കുട്ടികൾക്കും അന്ധതയോ ഗുരുതരമായ കാഴ്ച പ്രശ്നങ്ങളോ ഉണ്ടെന്നാണ് കണ്ടെത്തൽ കുട്ടികളിലെ കാഴ്ച തകരാറുകൾ അവരുടെ സാമൂഹികവും മാനസികവും വിദ്യാഭ്യാസപരമായ വളർച്ചയെ ബാധിക്കുന്നുണ്ട് കുട്ടികളുടെ അന്ധത നിർമ്മാർജ്ജന മാർഗങ്ങളെ കുറിച്ച് ബോധവത്കരണം ശക്തമാക്കുമെന്ന് മന്ത്രി കെ

കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഈ വിഷയത്തിൽ വെബിനാറും സ്കൂൾ കുട്ടികൾക്ക് സംവാദവും സംഘടിപ്പിക്കും രും സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത അഞ്ചു ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കിമലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റേയും മൺസൂൺ പിൻവാങ്ങുന്നതിന്റേയും ഫലമായാണ് മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു രുര സംസ്ഥാനത്തെ ആദ്യ ജീവാണു ജൈവവള ഗുണ നിയന്ത്രണ കേന്ദ്രം പാലക്കാട് പട്ടാമ്പിയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് നൽകുന്ന റിപ്പോർട്ട്

ടി സെക്രട്ടറി എം

ജൂലൈയിൽ ശിവശങ്കറെ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു രും ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേട് സി ബി ഐ അന്വേഷിക്കുന്നതിനെതിരെ സംസ്ഥാന ഗവൺമെന്റും യൂണിടാക്ക് ഉടമ സന്തോഷ് ഈപ്പനും നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കഴിഞ്ഞ ദിവസം ഹർജികൾ പരിഗണനയ്ക്ക് വന്നെങ്കിലും വിശദമായ വാദം കേൾക്കാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു രും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടുണ്ടായെന്ന ആരോപണം അന്വേഷിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി സംസ്ഥാന ഗവൺമെന്റിനോടും പി

പ്രിലിമിനറി പരീക്ഷ എഴുതിയ ആറു പേരാണ് ഹർജി നൽകിയത് കേസ് മൂന്ന് ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും രുര എറണാകുളം ജില്ലയിലെ പോപ്പുലർ ഫൈനാൻസിന്റെ കീഴിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അടയ്ക്കാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ജില്ലാ കലക്ടർ എസ്

പണം സ്വർണ്ണം മറ്റു ആസ്തികൾ എന്നിവ കണ്ടു കെട്ടാനും ഇവരുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകൾ മരവിപ്പിക്കാനും നിർദേശം നൽകി സ്വത്തുക്കളും ആസ്തികളും കൈമാറ്റം ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി

ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ എസ്

രുര മണിപ്പൂർ നാഗാലാന്റ് എന്നിവിടങ്ങളിലെ മുൻ ഗവർണറും സിബിഐ മുൻ ഡയറക്ടറുമായ അശ്വനി കുമാറിനെ ഷിംലയിലെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി